എസ്

വേദിയുടെ മൂന്നാം നേതൃത്വതല ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് അഭിസംബോധന ചെയ്യും

ലോകത്ത് കോവിഡ്ട് ്രോഗികൾ ഏറ്റവും ന് കുറഞ്ഞ രാജ്യങ്ങ്ളിൽ ഒന്ന് ഇന്ത്യയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ കൂടുതൽ പിന്തുണ നൽകണമെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ

എസ്

ഇന്ത്യ യു എസ് വാരം പുതിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് അഞ്ചുദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് വൃാപാരം നിക്ഷേപം തന്ത്രപ്രധാന ഊർജ സഹകരണം ആരോഗ്യം സാങ്കേതികവിദ്യ എന്നിവയിലുള്ള പങ്കാളിത്തം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും ഇതിനുപുറമേ ആഗോള ഉത്പാദക കേന്ദ്രമായി മാറാനുള്ളൂ ഇന്ത്യയുടെ ശേഷി ഇന്ത്യൻ വാതക വിപണിയുടെ സാധൃത്തക്ൾ ബഹിരാകാശ സാങ്കേതിക രംഗത്തെ സാധ്യതകളൂം ിവ്യെല്ലുവിളികളും ഇൻഡോ പസഫിക് സാമ്പത്തിക വിഷയങ്ങൾ പൊതുജനാരോഗ്യ രംഗത്തെ നൂതന ആശയങ്ങൾ എന്നിവയും ഉച്ചകോടിയിൽ ചർച്ചയാകും അഭിസംബോിധ്നു ആകാശവാണി തൽസമയം പ്രക്ഷേപണം ചെയ്യും

സ്കൂൾ കോളേജ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ തുറക്കില്ല

കേന്ദ്ര സർക്കാരിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു

പരിശോധനകൾ കൂടുന്ന് സമയത്ത് കേസുകളുടെ എണ്ണം കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ കോവിഡ് കേസുകൾ വ്യാപിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു

ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ തോത് വർധിച്ചിട്ടുണ്ട് രോഗവ്യാപനം വർധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും എന്നതിനാൽ അടുത്ത രണ്ടാഴ്ച പ്രധാനമാണ് നാലാംഘട്ട ലോക്ഡൌൺ ഇളവുകൾ കൂടി നിലവിൽ വന്നതിനാൽ ജനങ്ങൾ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

നാല് സർവ്വകലാശാലകളുടെ പഠനസംവിധാനങ്ങൾ സംയോജിപ്പിച്ചായിരിക്കും ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിക്കുക

ജെ പി ഉന്നയിച്ച വ്യാജ ഒപ്പ് ആരോപണം കാര്യങ്ങളെ കുറിച്ച് നിശ്ചയമില്ലാത്തതിനാലെന്ന് മുഖ്യമന്ത്രി

മൊറട്ടോറിയം കാലാവധി അവസാനിക്കുമ്പോൾ ഉപഭോതാക്കൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കണമെന്ന് ധനമന്ത്രി നിർദേശം നൽകി

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയ പ്രത്യേക വായ്പാ പരിഹാര ചട്ടക്കൂട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ ബാങ്കുകൾ സ്വീകരിച്ച തയ്യാറെടുപ്പുകൾ കേന്ദ്ര ധനമന്ത്രി വിലയിരുത്തി എല്ലാത്തരം പ്രായോഗിക ഇടപാടുകളുടെയും വീണ്ടെടുക്കൽ സംബന്ധിച്ച സമഗ്ര പുനരുദ്ധാരണ പദ്ധതിയുടെ വേഗത്തിലുള്ള നടപ്പാക്കൽ ആവശ്യമാണെന്ന് ശ്രീമതി സീതാരാമൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി

ആത്മ നിർഭർ ഭാരത് പ്രധാനമന്ത്രി ഗരീബ് കല്യാണ് യോജന എന്നിവയുടെ ഗുണഫലങ്ങൾ മികച്ച രീതിയിൽ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനായി ധനകാരൃസ്ഥാപനങ്ങൾ സ്വീകരിച്ച നടപടിക്കുളെ ധനമന്ത്രി അഭിനന്ദിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡി പി വളർച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി വരുമാന അന്തരം ജി എസ് ടി നഷ്ടപരിഹാരം വരുമാന കമ്മി ധനസഹായം തുടങ്ങിയവയിലെ അവസാനവട്ട ചർച്ചയ്ക്കായാണ് യോഗം ചേരുക സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

എസ് പ്രൊബേഷണർമാരുടെ ദിക്ഷാന്ത് പരേഡ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും

എസ് കേഡറ്റുകളുമായി ശ്രീ മോദി ആശയവിനിമയം നടത്തും

ഈ വിഷയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്ത് സ്വീകരിച്ച കരുത്തുറ്റ നിലപാടുകളെ പ്രകീർത്തിച്ച അദ്ദേഹ്ട് പ്ലാ് ചൈനീസ് ആപ്പുകൾക്ക് നിരോധനമേർപ്പെടുത്തീയ് നടപടിയെ സ്വാഗതം ചെയ്തു

ട്രംപിനൊപ്പം അമേരിക്കൻ പ്രഥമ വനിത മെലാനിയ ട്രംപും സ്മാരകം സന്ദർശിച്ച് മരണമടഞ്ഞ വർക്ക് ആദരവ് അർപ്പിക്കും

അഞ്ച് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് ട്രംപ് ഭരണകൂടം ഇതുവരെ ചെലവിട്ടത് ഈ സാഹചര്യത്തിൽ ആഭ്യന്തര കടം മൊത്തം ആഭ്യന്തരോൽപാദനത്തേക്കാൾ കൂടുമെന്നാണ് ബജറ്റ് വിഭാഗത്തിന്റെ കണക്ക് കൂട്ടൽ

മയക്കുമരുന്ന് കേസിൽ ബ്യൂറോ അറസ്റ്റ് ചെയ്ത ബാസിത് പരിഹാറുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്നാണ് നടപടി

ഐ നടത്തിയ പരിശോധനയിലാണ് നിലവാരമില്ലാത്ത അരി വിതരണം ചെയ്തതായി കണ്ടെത്തിയത്